ഞായറാഴ്ച ശ്രീലങ്കയിൽ നിട്ന്ന് ഭീകരാക്രമണത്തിൽ ഒൻപത് ചാവേറുകൾ പങ്കെടുത്ത്തായി ഗവൺമെന്റ്

ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നാലാംഘട്ട വോട്ടെടുപ്പ് പ്രപചാരണം ഉച്ഛസ്ഥായിയിൽ

ഐ പി എൽ ക്രിക്കറ്റിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഇന്ന് പഞ്ചാബ് കിംഗ്സ് ഇലവനുമായി ഏറ്റുമുട്ടും

ജസ്റ്റിസ് ആർ എഫ് നരിമാൻ ജസ്റ്റിസ് ദീപക് ഗുപ്പ്തു എന്നിവരാണ് ബഞ്ചിലെ മറ്റംഗങ്ങൾ ഗൂഢാലോചനയ്ക്ക് ത്രെളിവു് ന് അവകാശവാദമുന്നയിച്ച അഭിഭാഷകൻ ഉത്സവ് സിംഗ് ബെയിൻസിനോട് നാളെ രാവിലെ തന്നെ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ബഞ്ച് നിർദ്ദേശിച്ചു ലൈംഗികാരോപണത്തിന്മേൽ പ്രഖ്യാപിച്ച ആഭ്യന്തര അന്വേഷണവുമായി ഇതിന് ബന്ധമില്ലെന്നും കോടതി അറിയിച്ചു അഭിഭാഷകന്റെ ആരോപണം സംബന്ധിച്ച് ചർച്ചകൾക്കായി നേരത്തെ സി ബി ഐ ഐ ബി ഡൽഹി പോലീസ് തലവന്മാരെ വിളിച്ചു വരുത്തിയ ബഞ്ച് ചേംബറിൽ ചർച്ച നടത്തിയിരുന്നു

എട്ട് കേന്ദ്രങ്ങളിലായി നടന്ന ആക്രമണത്തിൽ എട്ട് ചാവേറുകൾ പങ്കെടുത്തിട്ടു ന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതായി പ്രതിരോധ മന്ത്രി റുവാൻ വിജേ വർധേന മാധ്യമങ്ങളോട് പറഞ്ഞു ഇവരിൽ ഒരാൾ നേതൃനിരയിൽ നിന്നുകൊ ് മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു തീവ്രവാദികൾ നാഷണൽ തൌഹീദ് ജമാത്ത് എന്ന സംഘടനയിൽപ്പെട്ടവരാണ് ക്രിസ്ത്യൻ പള്ളികൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുകയായിരുന്നു തീവ്രവാദികളുടെ ലക്ഷ്യമെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതായി മന്ത്രി വെളിപ്പെടുത്തി

തുടർ ആക്രമണത്തിന് സാധ്യത ഉ എന്ന അഭ്യൂഹത്തിന്റെ അടിസ്ഥാനത്തിൽ കൊളബോയിലും രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ഇതിനിടെ കൊളംബ്രോയിൽ നിന്നും സംശയകരമായ സാഹചര്യത്തിൽ ക്കെട്ടുത്ത സ്ഫോടക വസ്തുക്കൾ പോലീസ് നിർവീര്യമാക്കി

ഇവ ര ും പരിഹരിക്കാനായാൽ അസുഖങ്ങളുടെ വ്യാപനം തടയാമെന്നും നടൻ അക്ഷയ്കുമാറുമായുള്ള സംഭാഷണത്തിനിടെ അദ്ദേഹം സൂചിപ്പിച്ചു രാജ്യത്ത് ഒൻപത് കോടിയിലേറെ ശൌചാലയങ്ങൾ സ്ഥാപിക്കാനായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ജെ

പാർട്ടി അധ്യക്ഷൻ രാഹുൽഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ വച്ചാണ് ശ്രീ രാജിന്റെ കോൺഗ്രസ് പ്രവേശനം നടപ്പു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശ്രീ ഉദിത് രാജിന് ബി ജെ പി ടിക്കറ്റ് നൽകിയിരുന്നില്ല

മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്നാണ് ഇപ്പോൾ ജാമ്യത്തിലുള്ള പ്രഗ്യാസിംഗ് ജനവിധി തേടുന്നത് ജാമ്യം റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു

കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് വോയിസ് രാഷ്ട്രീയ പാർട്ടികളിലെ മുതിർന്നു നേതാക്കൾ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രചാരണ പ്പരിപാടികളിൽ പങ്കെടുത്തു

മതത്തിന്റെയോ ജാതിയുടെയോ പേരിൽ പ്രയാതൊരു വിധ വിവേചനവും തന്റെ ഗവൺമെന്റ് കാണിച്ചിട്ടില്ലെന്ന് ശ്രീ മോദി പറഞ്ഞു കേന്ദ്രത്തിൽ ബി ജെ പി നയിച്ച ഗവൺമെന്റ് ഇക്കഴിഞ്ഞ അഞ്ച് വർഷം കൊ ലോകത്തിന്റെ നെറുകയിലേക്ക് ഭാരത്തെ എത്തിക്കാനാണ് ശ്രമിച്ചതെന്ന് പശ്ചിമബംഗാളിലെ പൊതുറാലിയെ അഭിസംബോധന ചെയ്യവേ ശ്രീ മോദി അഭിപ്രായപ്പെട്ടു

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഉത്തർപ്രദേശിൽ ലഖിംപൂർ ഖേരിയിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു കർഷകർക്കും തൊഴിൽ രഹിതർക്കും നേട്ടങ്ങൾ ഉ ാക്കാൻ തന്റെ പാർട്ടി പ്രതിജ്ഞാബദ്ധമെന്ന് രാഹുൽ പറഞ്ഞു കോൺഗ്രസ് പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി വദ്ര ഫത്തേഹ്പൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു

മൂന്നു നേതാക്കന്മാരും സമർപ്പിച്ച അപേക്ഷയിൽ അഡീഷ്ണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് സമർ വിശാലാണ് ഉത്തരവിട്ടത്

ജമ്മുകാശ്മീർ സ്വദേശികളായ ഇവർ പാകിസ്ഥാനിലെ ഭീകരസംഘടനകളിൽ ചേർന്ന് പ്രവർത്തിച്ചു വരികയായിരുന്നു പാകിസ്ഥാനിൽ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന ഇവർ ഈയിടെ നിരോധിച്ച അതിർത്തി വഴിയുള്ള വ്യാപാരമാർഗ്ഗത്തിലൂടെയാണ് അനധികൃത കടത്ത് നടത്തിയത്

വിസാ കാലാവധി കഴിഞ്ഞവർ ഉൾപ്പെടെ എല്ലാവർക്കും എക്സിറ്റ് വിസ ഇന്ത്യൻ എംബസി നൽകുന്നു ്

ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ലിബിയയിലെ ഇന്ത്യക്കാരോട് ശ്രീമതി സുഷമ സ്വരാജ് അഭ്യർത്ഥിച്ചു ലിബിയയിലെ ട്രിപ്പോളിയിൽ കഴിയുന്ന ഇന്ത്യക്കാർ ഉടൻ മടങ്ങണമെന്നും സമയം കഴിയുന്തോറും യുദ്ധമേഖലയിൽ നിന്ന് അവരെ ഒഴിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെന്റിന് ബുദ്ധിമുട്ടു ാകുമെന്നും വിദേശകാര്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു

സുരക്ഷാ കാരണങ്ങളാൽ കോടതി നടപടികൾ വീഡിയോ കോൺഫറൻസിംഗ് വഴി ആക്കണമെന്ന തീഹാർ ജയിൽ അധികൃതരുടെ അപേക്ഷയിന്മേൽ കോടതി പ്രതിഭാഗം അഭിഭാഷകന്റെ വിശദീകരണം തേടി കൂടുതൽ ചോദ്യം ചെയ്യലിനായി മാലിക്കിനെ ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറാനും കോടതി നിർദ്ദേശിച്ചു ചോദൃം ചെയ്യാൻ വിട്ട് കിട്ടണമെന്ന ദേശീയ അന്വേഷണ ഏജൻസിയുടെ അപേക്ഷ പ്രകാരമാണ് ജമ്മു കാശ്മീരിൽ നിന്ന് അദ്ദേഹത്തെ ഡൽഹി കോടതിയിൽ ഹാജരാക്കിയത്

പോലീസെടുത്ത കേസിൽ കമ്പനിയുടെ മധുര ചെന്നൈ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്

പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാലാണിത്

സാധാരണ എല്ലാ വർഷവും ഏപ്രിലിലാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്

ആരോഗ്യം ഭൌതികശാസ്ത്രം രസതന്ത്രം സാഹിത്യം സമാധാനം എന്നീ മേഖലകളിലാണ് എല്ലാ വർഷ്ടപ്പും നൊബേൽ പുരസ്കാരം നൽകുന്നത്

എല്ലിൽ ഇന്ന് ഒരു മത്സരം രാത്രി എട്ടുമണിക്ക് നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കിങ്സ് ഇലവൻ പഞ്ചാബും ഏറ്റുമുട്ടും പത്ത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം ഏറെ നിർണ്ണായകമാണ്

അതേസമയം അഞ്ചാം സീഡ് കിഡംബി ശ്രീകാന്ത് ആദ്യ റൌ ിൽ പുറത്തായി

ഏഴ് ഇന്ത്യൻ പുരുഷതാരങ്ങളും ആറ് വനിതാ താരങ്ങളുമാണ് സെമിയിൽ എത്തിയത് സെമിഫൈനൽ മത്സരങ്ങൾ നാള്ള് നടക്കും

സാംസ്കാരിക വകുപ്പ് മന്ത്രി നൌറ ബിന്റ് മുഹമ്മദ് അൽ ഖാബി ഇന്ത്യൻ അംബാസിഡർ നവ്ദീപ് സുരി നാഷ്ണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാൻ പ്രൊഫ ഗോവിന്ദ് പ്രസാദ് ശർമ്മ തുടങ്ങിയ പ്രമുഖർ സന്നിഹിതരായിരുന്നു